മറികടക്കാൻ മോട്ടോർ വാഹനചട്ടം ഭേദഗതി ചെയ്യുമെന്ന് മന്ത്രി എ

ശശീന്ദ്രൻ

ആറാട്ട് പത്ത് ദിവസത്തെ ശബരിമല ഉത്സവം ഇന്ന് സമാപിക്കും

അല്പസമയത്തിനകം കേരളം മിസോറാമിനെ നേരിടും

ശശീന്ദ്രൻ കെ എസ് ആർ ടി സി യുടെ സൂപ്പർ ഫാസ്ററ് ബസ്സുകളിൽ നിന്നുകൊണ്ട് യാത്ര ചെയ്യുന്നത് നിരോധിച്ച ഹൈക്കോടതി വിധി മറികടക്കാൻ സംസ്ഥാന ഗവൺമെന്റ് മോട്ടോർ വാഹന ചട്ടം ഭേദഗതി ചെയ്യും ഹൈക്കോടതി വിധിയുടെ ഉദ്ദേശശുദ്ധിയെ ഗവൺമെന്റ് മാനിക്കുന്നുണ്ടെങ്കിലും നിലവിൽ ഉത്തരവ് നടപ്പാക്കുക പ്രായോഗികമല്ലെന്ന് മന്ത്രി എ

കെ എസ് ആർ ടി സി യുടെ നഷ്ടം മാത്രം കണ്ണക്ട്ടാക്കിയല്ല യാത്രക്കാരുടെ ബുദ്ധിമുട്ട് കൂടി പരിഗണിച്ചാണ് മുട്ടും ഭേദഗതിചെയ്യുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ഹൈക്ക്രോട്തി ഡിവിഷൻ ബഞ്ചിന്റെ ഉത്തരവിനെതിരെ പുനഃപരിശ്രൊധന് ഹർജി നൽകാൻ ഗവൺമെന്റിന് നിയമോപദേശം ലഭിച്ചിട്ടുണ്ട് സൂപ്പർ ഫാസ്റ്റ് മുതലുള്ള കെ എസ് ആർ ടി സി ബസ്സുകളിൽ ്യാത്രക്കാരെ നിർത്തിക്കൊണ്ട് പോകുന്നത് നിരോധിച്ച് കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചത്

ട്രഷറി ബാങ്കിൽ തനത് ഫണ്ട് നിക്ഷേപിച്ചിട്ടുള്ള തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്ക് പണം പിൻവലിക്കുന്നതിന് തടസ്സമുണ്ടാകില്ല അടുത്ത സാമ്പത്തിക വർഷം പദ്ധതി പ്രവർത്തനത്തിൽ ഗുണപരമായ മാറ്റമുണ്ടാകുമെന്നും ഏപ്രിൽ ഒന്നു മുതൽ തന്നെ അടുത്ത സാമ്പത്തിക വർഷത്തെ പദ്ധതി നിർവ്വഹണം ആരംഭിക്കാനാകുമെന്നും മന്ത്രി ഫെയ്സ്ബുക്ക് കുറിപ്പിൽ അറിയിച്ചു

കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി പ്രതിനിധി ആന്റണി മുനിയറ

ചക്കാന്തറ സെന്റ് റാഫേൽ കത്തീഡ്രൽയാക്കര സെന്റ്മേരീസ് ഓർത്തഡോക്സ് ദേവാലയം സുൽത്താൻപേട്ട സെന്റ് സെബാസ്റ്റിയൻ കത്തീഡ്രൽ സിവിൽ സ്റ്റേഷൻ സെന്റ് തോമസ് മാർത്തോമാ ദേവാലയം എന്നിവിടങ്ങളിൽ രാവിലെ ദുഃഖവെള്ളി ശുശ്രൂഷകൾ നടന്നു

അർത്തുങ്കൽ പള്ളിയിൽ വൈകിട്ട് നൂഗർം കാണിക്കൽ ദീപക്കാഴ്ച തുടങ്ങിയ പരിപാടികൾ നടക്കും

തിരുസ്വരൂപം പൊതു വണക്കത്തിനായി പ്രദർശിപ്പിച്ചിരിക്കുകയാണ്

രാജ്യത്തിന്റെ നിയമം കൊണ്ട് ദൈവത്തിന്റെ നീതിയെ അളക്കുന്നത് തെറ്റാണെന്നും അദ്ദേഹം പറഞ്ഞു

ടൂർണമെന്റിൽ ഇതുവരെ ഏറ്റവും കൂടുതൽ ഗോളടിച്ചതും ഏറ്റവും കുറവ് ഗോൾ വഴങ്ങിയതും കേരളമാണ്

ഇന്ന് നടക്കുന്ന മറ്റൊരു സെമി മത്സരത്തിൽ ആതിഥേയരായ ബംഗാൾ ബി ഗ്രൂപ്പ് ചാമ്പ്യന്മാരായ കർണാടകയെ നേരിടും

കെട്ടിട നിർമാണ രംഗത്തു പ്രവർത്തിക്കുന്ന കുടുംബശ്രീ വനിതകളെ ഉൾപ്പെടുത്തിയാണ് യൂണിറ്റുകൾ രൂപീകരിച്ചിരിക്കുന്നത്

ഏറ്റവും കൂടുതൽ കുടുംബങ്ങൾക്ക് തൊഴിൽ ദിനങ്ങൾ നൽകിയതിലും തിരുവനന്തപുരമാണ് മുന്നിൽ

സി ടി

എൽ ഡി എഫ് സ്ഥാനാർത്ഥി സജി ചെറിയാനും യു ഡി എഫ് സ്ഥാനാർത്ഥി ബി വിജയകുമാറും എൻ ഡി എ സ്ഥാനാർത്ഥി അഡ്വ പി എസ് ശ്രീധരൻപിള്ളയും ദുഖഃവെള്ളിയുമായി ബന്ധപ്പെട്ട് വിവിധ ക്രൈസ്തവ ദേവാലയങ്ങളിൽ നടന്ന ചടങ്ങുകളിൽ പങ്കെടുത്തു

ഇക്കൊല്ലത്തെ മുംബൈ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ പുരസ്കാരം നേടിയ ഡോക്യുമെന്ററികളും ഷോർട്ട് ഫിലിമുകളും മറ്റുമാണ് മേളയിൽ പ്രദർശിപ്പിക്കുന്നതെന്ന് ഫിലിംസ് ഡിവിഷൻ സീനിയർ ബ്രാഞ്ച്മാനേജർ കെ

ട്ടടടടടടടടടടടടടടടടടടട ചലച്ചിത്ര ആക്കാദമി ഓരോ ജില്ലയിലെയും ചലച്ചിത്ര പ്രവർത്തകരുടെ ഡയറക്ടറി തയ്യാറാക്കുമെന്നും സിനിമാ പ്രസിദ്ധീകരണങ്ങൾ നോട്ടീസുകൾ ഗാനങ്ങൾ തുടങ്ങിയവ ആർക്കൈവ് ചെയ്യാൻ ശ്രമം ആരംഭിച്ചതായും സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ കമൽ പറഞ്ഞു പാലക്കാട് പ്രസ്ക്ലബ്ബ് സംഘടിപ്പിച്ച ടോപ്ടെൻ രാജ്യാന്തര ചലചിത്രോത്സവം സമാപനം ഉത്ഘാടനം ചെയ്യുകയായിരുന്ന അദ്ദേഹം